കേരളത്തിൽ മിക്ക ജില്ലകളിലും മഴയ്ക്ക് ശമനം

അഞ്ച് ദിവസത്തിനുള്ളിൽ മഴ കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ചുവപ്പു കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി അഭിവാദൃം സ്വീകരിച്ചു തുടർന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബ്ടോധന ചെയ്തു

ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും മുത്തലാഖ് നിരോധിച്ചതും ഇക്കാലയളവിൽ ഗവൺമെന്റ് കൈക്കൊണ്ട ചില സുപ്രധാന തീരുമാനങ്ങളായിരുന്നുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പ്രശ്നങ്ങളെ വളർത്തി വലുതാക്കി പരിഹാരത്തിനായി കാലതാമസം ഉണ്ടാക്കുക എന്നത് ഈ ഗവൺമെന്റിന്റെ നയമല്ല ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ പരാമർശിച്ച് ഒരുരാജ്യംഒറ്റ ഭരണഘടന എന്ന ആശയം സഫലമായെന്നും അതിൽ അഭിമാനം കൊള്ളുവെന്നും ശ്രീ

രാജ്യത്ത് പ്രളയക്കെടുതുകളിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം അറിയിച്ച അദ്ദേഹം ആശ്രിതർക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു

ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമാണെന്നും ഇന്ത്യയെ അത് കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മൂന്ന് സേനാവിഭാഗങ്ങളുടേയും ഏകോപനം ഉറപ്പാക്കുന്നതിനായി പ്രതിരോധ സേനാതലവനെ നിയമിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു

കെ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഗവർണർ സത്യപാൽ മാലിക് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു കൂടുതൽ വിവരങ്ങളുമായി തുളസിദാസ്

ജമ്മു കാശ്മീരിലെ വിവിധ സേനാവിഭാഗങ്ങളായ ഒജ്കുക്പി

കെ

ആർ

ആർ

എഫ്

എസ് എഫ് വനിതാ പൊലീസ് സംസ്ഥാന ദുരന്ത നിവാരണ സ്കേന് അഗ്നിശമന വിഭാഗം തുടങ്ങിയവർ സ്വാതന്ത്ര്യ ദിന പരേഡിൽ അണിനിരന്നു കാശ്മീരികളുടെയും മറ്റുള്ളവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പുതിയ നടപടികളിലൂടെ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമെന്ന് ഗവർണർ സ്വാതന്ത്യ ദിനാഘോഷത്തിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞു ജമ്മു കാശ്മീരിന്റെ വികസനത്തിനും പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ നടപടി വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന്റെ നടപടി വികസനത്തിനും ക്ഷേമത്തിനും ജനങ്ങൾ പങ്കാളികളാകണമെന്നും സമാധാനം തിരിച്ചു കൊണ്ടു വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ജമ്മു കാശ്മീരിന്റെ വികസനത്തിന് യുവാക്കൾ നിർണ്ണായക പങ്കുവഹിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ലേയിൽ ലഡാക്ക് ഹിൽ കൌൺസിലിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗയാൽ പി

ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെയും ആഭ്യന്തരമന്ത്രി അമിത് ഷാ യെയും ഗയാൽ പി വാങ്ഗേൽ അഭിനന്ദിച്ചു

പൊലീസ് എക്സൈസ് ഫോറസ്റ്റ് ഗാർഡ്സ് അഗ്നിശമന സേന എൻ സി സി

ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ നൂറുകണക്കിന് ജനങ്ങൾ ചടങ്ങിന് ദൃക്സാക്ഷികളായി

തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയപതാക ഉയർത്തിയശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം രാജ്ഭവനിൽ ഗവർണർ ജസ്റ്റിസ് പി

കൊല്ലത്ത് ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി കെ

മഴ മാറി തെളിഞ്ഞ അന്തരീക്ഷത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കുചേരാൻ ധാരാളം പേർ എത്തിയിരുന്നു എറണാകുളം കളക്ട്രേറ്റിൽ മന്ത്രി വി

ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഐമ്തീർതിയിൽ നടന്ന സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വൈദ്യുതി മന്ത്രി എം ്എം

കോഴിക്കോട് വെസ്റ്റ്ഹിര്ർ വീക്രം മൈതാനിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എ

വയനാട് കല്പറ്റയിൽ എസ്

ജെ സ്കൂളിൽ സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി കെ

മലപ്പുറം എം

ഗ്രൌണ്ടിൽ നടന്ന സ്വാതന്ത്രൃദിന ചടങ്ങിൽ മന്ത്രി കെ

കണ്ണൂർ പൊലീസ് മൈതാനിയിൽ സംഘടിപ്പിച്ച സ്വാതന്ത്രൃദിനാഘോഷ പരിപാടിയിൽ മന്ത്രി ഇ

കാസർകോട് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി ഇ

ലക്ഷദ്വീപിൽ കവരത്തി സ്ക്കുൾ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ നടന്ന സ്വാതന്ത്രൃ ദിനാഘോഷ ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ

കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ തൃശ്ശൂർ പാലക്കാട് എന്നീ ജില്ലാ ആസ്ഥാനത്തും സ്വാതന്ത്രൃ ദിനാഘോഷ പരിപാടികൾ നടന്നു

ചൈന ആസ്ട്രേലിയ തുടങ്ങി ഒട്ടേറെ രാജ്യങ്ങളിലെ ഇന്ത്യാക്കാർ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും അത്യാഹ്സാദപൂർവ്വമാണ് ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് ചൈനയിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന സ്വാതന്ത്രൃദിന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ വിക്രം മിസ്രി ദേശീയ പതാക ഉയർത്തി ആസ്ട്രേലിയൻ തലസ്ഥാനമായ ക്യാൻബറയിലും മെൽബ്ൺ സിഡ്നി പെർത്ത് എന്നിവിടങ്ങളിലെ ഇന്ത്യർ ്ന്യതന്ത്ര കാര്യാലയങ്ങളിലും നടന്ന സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു ദുബായ് യു

മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് സോലിഹ് നേപ്പാൾ പ്രധാനമന്ത്രി കെ

പാർലമെന്റ് മന്ദിരത്തിലെ മഹാത്മാ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം ലോക്സഭ സ്പീക്കർ ഓം ബിർള ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അന്തർ സംസ്ഥാന കൌൺസിൽ അധ്യക്ഷൻ

രാജ്നാഥ് സിംഗ് ശ്രീ അമിത് ഷാ ശ്രീമതിട്സിർമ്ലാ സീതാരാമൻ എന്നിവരുൾപ്പെടെ ആറ് കേന്ദ്രമന്ത്രിമാരും

ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആയിരിക്കും അന്തർ സംസ്ഥാന കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ

ഇന്ന് വൈകിട്ട് മൂന്ന് മണി വരെയുള്ള കണക്കുകളാണിത്

ഇനിയും ഏഴുപേരെയാണ് ഇവിടെ നിന്നും കണ്ടെത്താനുള്ളത്